ജമ്മുകാശ്മീരിൽ രണ്ട് ഏറ്റുമുട്ടലുകളിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു ഒരുംജപ്പാന് വീരമൃത്യു

പാകിസ്ഥാന് ശക്തമായ പ്രഹരം നൽകാൻ ഇന്ത്യ പ്രാപ്തമെന്ന് രാജ്യരക്ഷാ മന്ത്രി

ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ മൻ കി ബാത് നാളെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

അഫ്ഗാനിസ്ഥാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു

ഐകൃരാഷ്ട്രസഭ പൊതുസമ്മേളന ത്തിൽ പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ഉള്ള മറുപടിയായാണ് ഇന്ത്യൻ വിദേശകാരൃ മീത്ത്ലയത്തിലെ ഉദ്യോഗസ്ഥ വിദിഷ മൈത്ര ഇക്കാര്യം പറഞ്ഞത്

പ്രതികരിക്കാൻ ലഭിച്ച അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് ആദ്യമായാണ് യു

ശ്രീമതി മൈത്ര ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടു കയും ചെയ്തു ഒസാമ ബിൻ ലാദന് തുറന്ന പിന്തുണ പാകിസ്ഥാൻ നൽകിയിരുന്ന കാര്യം ഐക്യരാഷ്ട്ര സഭയിൽ നിഷേധിക്കാനാവുമോ എന്ന് അവർ ചോദിച്ചു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആണവായുധ ഭീഷണി നയതന്ത്രജ്ഞതയെ അല്ല ഭീരുത്വമാണ് വെളിവാക്കുന്നതെന്നും മൈത്ര ആരോപിച്ചു മുഖ്യധാരയിൽ തീവ്രവാദവും വെറുപ്പിന്റെ സംഭാഷണവും കൊണ്ട് മനുഷ്യാവകാശ രക്ഷകനാവാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്നും മൈത്ര പറഞ്ഞു

പൊതുസഭയിൽ ജ്മ്മുകാശ്മീരിനേയും ലഡാക്കിനേയും പരാ മർശിച്ച് ചൈനീസ് വിദ്ദേശകാര്യ മന്ത്രി പ്രസംഗിച്ചതിന് ഇന്ത്യ ശക്തമായ താക്കീത് നൽകി ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അഭിവാജ്യഘടക മാണെന്നും സമീപകാലത്ത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണെന്നും വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരത്തേയും പ്രാദേശിക സമന്വയത്തേയും മറ്റ് രാജ്യങ്ങൾ ബഹുമാനിക്കണമെന്നുംശ്രീ

ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട്വിമാനത്താവളത്തിൽ നിന്നുംഅല്പസമയത്തിന് മുമ്പ് അദ്ദേഹംയാത്ര തിരിച്ചു

വിദേശരാജ്യങ്ങളുമായുള്ള ബന്ധം നിർണയിക്കുന്ന യു എസ് സമിതിയിലെ മുതിർന്ന അംഗമാണ് ബോബ് മെനൻ ഡെസ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച വട്ടമേശ ക്ല സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ഒരു ജവാൻ വീരമൃത്യു വരിച്ചു

ബാറ്റോട്ട് നഗരത്തിലെവീട്ടിൽ കൂടുങ്ങിപ്പോയ അഞ്ചംഗ ഭീകരർ രക്ഷപെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സൂരക്ഷാസേന യ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു

സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഭീകരർക്കായി തെരച്ചിൽ നടത്തിവരികയായിരുന്നു

ഭീകരർ ബന്ദിയാക്കിയ പ്രദേശവാസിയെ പരിക്കൂകൾ കൂടാതെ രക്ഷപ്പെടുത്തി അതേസമയം മധ്യകാശ്മീരിലെ ഗന്ധേർബാൽ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുള്ളതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നുച്ചയ്ക്ക് നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്

സംസ്ഥാന ഗവൺമെന്റിലെ ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സെക്രട്ടറി മനോജ് കുമാർ ദിവേദിയാണ് ഇക്കാരൃം അറിയിച്ചത് പകൽ സമയത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണ്ണങ്ങളിൽ നിന്നും താഴ്വര സ്വതന്ത്രമായതായി ശ്രീ

ഇന്ത്യയുടെ സ്ട്ക്ട്ട്ട്ട്ടിൻ ഇനത്തിലെ രണ്ടാം അന്തർവാഹിനി ഐ എൻ എസ് ഖണ്ഡേരി മുംബൈയിൽ കമ്മീഷൻ ചെയ്യുകയായിരു ന്നു് അദ്ദേഹം വോയിസ് പ്രതിരോധ സേനയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ

പാർലമെന്റ് ആക്രമണം പോലെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ രാജ്യം സുസജ്ജമാണെന്നും ഈ രീതിയിൽ മുന്നോട്ടുള്ള രാജ്യത്തിന്റെ ചുവടുവയ്പാണ് ഐ

എസ് ഖണ്ഡേരിയിലൂടെ നടത്തിയിരിക്കുന്നത് നാവികസേനയിൽ രാജ്യം അഭിമാനം കൊള്ളുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു പാകിസ്ഥാനെ തകർത്ത ഓപ്പറേഷൻ ട്രിഡന്റ് പൈതൺ എന്നിവയിലെ വിജയം സേനയുടെ വലിയ നേട്ടങ്ങളാണ്

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയുള്ള അന്തർവാഹിനിയുടെ നിർമ്മാണം മറ്റ് വ്യവസായങ്ങൾക്ക് നേരിട്ടല്ലാതെ ഗുണകരമാകുന്നതായും മന്ത്രി പറഞ്ഞു ഫ്രഞ്ച് നാവികസേനയുമായുള്ള ഇന്ത്യൻ നാവികസേനയുടെ പങ്കാളിത്തം ഇനിയും വർദ്ധിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പ്രത്യാശിച്ചു

എസ് നീൽഗിരിയും ലോകോത്തര നിലവാരത്തിലുള്ള വിമാനവാഹിനി ഡോക്കും കേന്ദ്ര മന്ത്രി ഉദ്ഘാടനം ചെയ്തു

നരേന്ദ്രമോദ്ലി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും

മൻ കി ബാതിന്റെ മലയാള പരിഭാഷ കേരള നിലയങ്ങളിൽ രാത്രി എട്ട് മണിക്ക് പ്രക്ഷേപണം ചെയ്യും

ന്യൂഡൽഹിയിൽകേന്ദ്ര പൊതുമേഖലാസ്ഥാപനങ്ങളുടെ തലവൻമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക്ശേഷം മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സാമ്പത്തിക ഇടപാടുകൾ പൂർത്തീകരിക്കാൻ എന്തെങ്കി ലും തടസ്സങ്ങളുണ്ടോ എന്ന് ആരാഞ്ഞിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കരോൾ ജസ്റ്റിസ് അരിന്ധാം ലോധ് എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് വിധി സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ യാതൊരു മൃഗത്തെയോ പക്ഷിയെയോ ബലി നൽകരുതെന്ന് ഉത്തരവിൽ പറയുന്നു

നിരവധി പേർക്ക് പരിക്കേറ്റു

സോർത്ത്റോഡ് ജില്ലയിലുണ്ടായ രണ്ടാമത്തെ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു